കപ്പലുകളും ഹെലികോപ്റ്ററും സജ്ജമാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്

എൽ ഫുട്ബോളിൽ ഗോവ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം സമനിലയിൽ

കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ കേസുകളുടെ എണ്ണം കൂടുതലായിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിശദാംശങ്ങളുമായി ജഷിത കുമാരി വോയ്സ് തെരഞ്ഞെടുപ്പും മറ്റ് ആഘോഷങ്ങളും നടക്കുന്ന ഘട്ടമാണിതെന്നും കോവിഡ് നിയന്ത്രണ നടപടികൾ കൂടുതൽ ശക്തമായി മുന്നോട്ടു കൊണ്ടു പോകേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പോസ്റ്റ് കോവിഡ് സിൻഡ്രം പലരിലും ഗുരുതരമാകുന്ന സ്ഥിതി വിശേഷം കണക്കിലെടുത്താണ് പോസ്റ്റ് കോവിഡ് ക്റ്റിനിക്കുകൾ ആരംഭിച്ചിരിക്കുന്നത്

ഈ വർഷം അവസാനത്തോടു കൂടി ചില വാക്സിനുകൾക്ക് അംഗീകാരം ലഭിക്കുകയും അടുത്തവർഷം ആദ്യത്തോടെ പരിമിതമായ അളവിലെങ്കിലും ലഭ്യമായിത്തുടങ്ങുകയും ചെയ്യുമെന്നാണ് ശാസ്ത്രലോകം പ്രകടിപ്പിക്കുന്ന പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

രംഭ തൃശൂർ അയ്യന്തോൾ സിവിൽ സ്റ്റേഷനിലെ വിവിധ ഗവൺമെന്റ് ഓഫീസുകളിൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കോവിഡ് വ്യാപനത്തോത് കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി രും കണ്ണൂർ ജില്ലയിൽ കൊവിഡ് ചികിത്സയിൽ മുഖ്യ പങ്ക് വഹിച്ചു

രുര കൊവിഡ് മഹാമാരിയെ നാം ഒരുമിച്ച് ചെറുത്തു തോൽപ്പിക്കണമെന്ന് ഒളിമ്പ്യൻ പി

കേരളത്തിൽ കാറ്റിന്റെ ശക്തി എത്രമാത്രം ഉണ്ടാകുമെന്ന് വരും മണിക്കൂറുകളിൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറെടുപ്പുകളാണ് പുരോഗമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കരയിൽ ശക്തമായ കാറ്റിനും അതിതീവ്ര മഴക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ജില്ലകളിൽ ക്യാമ്പുകൾ സജ്ജമാക്കി വെക്കുന്നത് ഉൾപ്പെടെ തയ്യാറെടുപ്പ് പൂർത്തീകരിക്കാൻ നിർദേശം നൽകിയിട്ടുണ്ട് കാറ്റ് ശക്തിപ്പെടുന്ന സഹചര്യത്തിൽ അടച്ചുറപ്പില്ലാത്തതും ശക്തമായ മേൽക്കൂരയില്ലാത്തതുമായ വീടുകളിൽ താമസിക്കുന്നവരെ മാറ്റി പാർപ്പിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

രും തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപംകൊണ്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറി നാളെ വൈകീട്ടോടെ ശ്രീലങ്കൻ തീരം കടക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു

കോസ്റ്റൽ പൊലീസ് ജാഗ്രത സമിതി മുഖേന കടലിൽ പോയവരെ തിരികെ എത്തിക്കാൻ നിർദേശം നൽകിയിട്ടുണ്ടെന്നും കലക്ടർ പറഞ്ഞു ദേഴ കേരളം ഉൾപ്പെടെ രാജ്യത്ത് എവിടെയും ആകാശവാണി സ്റ്റേഷനുകൾ അടച്ചു പൂട്ടില്ലെന്ന് പ്രസാർഭാരതി സി

ഇതു സംബന്ധിച്ച് വാർത്താ ഏജൻസി പി ടി ഐ നൽകിയ വാർത്ത വ്യാജമാണെന്ന് അദ്ദേഹം ട്വിറ്ററിൽ വ്യക്തമാക്കി രുര കേരളത്തിലെ ആകാശവാണി നിലയങ്ങളിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വെട്ടിച്ചുരുക്കാൻ പ്രസാർഭാരതി എടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ബിനോയ് വിശ്വം എം പി കേന്ദ്രവാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർക്ക് കത്തയച്ചു സാധാരണ ജനങ്ങൾക്കും കലാകാരൻമാർക്കും അവസരനിഷേധത്തിന് ഇതിടയാക്കുമെന്നും അദ്ദേഹം കത്തിൽ പറഞ്ഞു രുര ഈ മാസം എട്ടിന് നടക്കുന്ന ആദ്യഘട്ട തദ്ദേശ ഭരണതെരഞ്ഞെടുപ്പിന് കോവിഡ് ബാധിതർക്കും ക്വാറന്റീനിൽ കഴിയുന്നവർക്കും പ്രത്യേക പോസ്റ്റൽ ബാലറ്റ് വിതരണം നാളെ ആരംഭിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി

ഓരോ ജില്ലയിലും വോട്ടെടുപ്പിന് പത്ത് ദിവസം മുമ്പ് മുതൽ തലേ ദിവസം വൈകുന്നേരം മൂന്നു വരെ ഇവർക്ക് തപാൽ വോട്ട് അനുവദിക്കുമെന്നും അതിനുശേഷം അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിശദാംശങ്ങളുമായി ഹസീല ടാംട്ടൺ വോയ്സ് വോട്ടെടുപ്പിന് തലേ ദിവസം മൂന്നിന് ശേഷം വോട്ടെടുപ്പ് വരെ അവസാനിക്കുന്നത് പോസിറ്റീവായവർക്കും നിരീക്ഷണത്തിൽ പ്രവേശിച്ചവർക്കും പി

ഇ കിറ്റ് ധരിച്ച് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പോളിങ്ങ് സ്റ്റേഷനിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യാമെന്നും കമ്മീഷണർ പറഞ്ഞു

മൂന്ന് ഘട്ടങ്ങളിലായി നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണത്തിനും വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും ക്രമീകരിക്കുന്നതിനും സമയക്രമം നിശ്ചയിച്ചതായും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലേക്ക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം നാളെയും മറ്റന്നാളുമായി നടക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി രുമ എറണാകുളം ജില്ലയിൽ കോവിഡ് പോസ്റ്റീവായവർക്കും നിരീക്ഷണത്തിൽ കഴിയുന്നവർക്കും പോസ്റ്റൽ വോട്ടിങ് നാളെ ആരംഭിക്കും സ്പെഷ്യൽ പോളിങ് ഓഫീസറും സ്പെഷ്യൽ പോളിങ് അസിസ്റ്റന്റും അടങ്ങുന്ന സംഘം നിരീക്ഷണത്തിലും ചികിത്സയിലും കഴിയുന്ന ആളുകൾക്ക് നേരിട്ടെത്തി പോസ്റ്റൽ ബാലറ്റുകൾ കൈമാറും നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ സമ്മതം ലഭിച്ചാൽ മാത്രമേ ബാലറ്റ് പേപ്പറുകൾ കൈമാറുകയുള്ളൂ

സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത് രും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് വയനാട് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കലക്ടർ ഡോ

ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിക്കോ സ്ഥാനാർത്ഥിക്കോ അനുകൂലമാകുന്നതോ പ്രതികൂലമാകുന്നതോ ആയ രീതിയിൽ എക്സിറ്റ് പോൾ നടത്തുന്നത് തടയുന്ന ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനും ബാധകമാണെന്നും കലക്ടർ അറിയിച്ചു രുര കൊല്ലം ജില്ലാതല എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു പ്രളയവും കോവിഡും മൂലം ദുരിതത്തിലായ സാധാരണക്കാർക്കൊപ്പമാണ് സംസ്ഥാന ഗവൺമെന്റെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രുമ കേന്ദ്ര ഗവൺമെന്റിന്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളെ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എയോട് അടുപ്പിച്ചതായി ബി ജെ

ചേർത്തലയിൽ എൻ

രുമ ഇന്ന് ലോക എയ്ഡ്സ് ദിനം എയ്ഡ്സ് എന്ന മഹാവിപത്തിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനാണ് എല്ലാ വർഷവും ഡിസംബർ ഒന്ന് യു

ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം

രുര ആലപ്പുഴ ബൈപാസിന്റെ ഉദ്ഘാടനത്തിന് എത്താൻ പ്രധാന മന്ത്രിക്ക് താല്പര്യമുണ്ടെന്ന് അറിയിച്ച് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഇ മെയിൽ ലഭിച്ചെന്ന് മന്ത്രി ജി

ദര കേരള കേന്ദ്ര സർവകലാശാലകളുടെ തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന നിയമ പഠന വിഭാഗവും പൂർവ്വ വിദ്യാർഥി സംഘടനയും നിയമവും പൊതു ജനാരോഗ്യ സംരക്ഷണവും പകർച്ച വ്യാധികളും മാറുന്ന ആരോഗ്യ അവകാശങ്ങളുടെ മാനങ്ങൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച രണ്ടു ദിവസത്തെ അന്താരാഷ്ട്ര വെബിനാർ ഇന്ന് സമാപിക്കും വെബിനാർ കൊച്ചി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് വൈസ് ചാൻസലർ പ്രൊഫ

സി സണ്ണി ഉദ്ഘാടനം ചെയ്തു